കായികക്ഷമത ആരോഗ്യം എന്നിവയെക്കുറിച്ച് പ്രധാനമന്ത്രി അവരോട് ആശയങ്ങൾ പങ്കുവെ ക്കും പരിപാടിയിൽ പങ്കെടുക്കുന്നവരുടെ ജീവിതകഥയും അനുഭവങ്ങളും അവർ പ്രധാനമന്ത്രിയുമായി പങ്കുവെക്കും വിരാട് കോഹ്ലി മുതൽ മിലിന്ദ് സോമൻ വരെയുള്ളവർ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്

ല്ലേക്സഭയുടെ അംഗീകാരം ലഭിച്ച ബില്ലുകൾ പാസാക്കി രാജ്യസഭ ഇന്ന് അന്നിശ്ചിതകാലത്തേക്ക് പിരിച്ചുവിടുകയും ചെയ്തു കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലാണ് സമ്മേളനം വെട്ടിച്ചുരുക്കിയത്

വ്യക്തികളും സംഘടനകളും സ്ഥാപനങ്ങളും വിദേശ സംഭാവന വാങ്ങുന്നതിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനുള്ള വ്യവസ്ഥകളാണ് വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലിൽ അനുശാസിക്കുന്നത് വിദേശസംഭാവന വാങ്ങുന്നതിന് വിലക്കുള്ളവരുടെ സർക്കാർ ഉദ്യോഗസ്ഥർക്കൊപ്പം പട്ടികയിൽ പൊതുസേവകരെക്കൂടി ഉൾപ്പെടുത്തുമെന്നും രാജ്യസഭ പാസാക്കിയ ബില്ലിൽ വ്യവസ്ഥയുണ്ട് മതപരിവർത്തനം വർഗീയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കൽ എന്നിവയ്ക്കായി വിദേശ ഫണ്ട് ഉപയോഗിച്ചാൽ രജിസ്ട്രേഷൻ റദ്ദാക്കാനും ഒരു കൊല്ലംവരെ മരവിപ്പിക്കാനും കേന്ദ്രത്തിന് അധികാരമുണ്ടാവുമെന്ന് ബില്ലിന്റെ ചർച്ചുക്ക് മറുപടി പറഞ്ഞ ആഭ്യന്തരസഹമത്തിൽ ്തിത്യാനന്ദ് റായി അറിയിച്ചു

അതേസമയം ലോക്സഭയുടെ അംഗീകാരം ലഭിച്ച ധനവിനിയോഗ ബിൽ രാജ്യസഭ തിരിച്ചയച്ചു ന്യൂസ് ഡസ്ക് ആകാശവാണി

ഇന്തൃയിലെ പ്രധാന തുറമുഖങ്ങളുടെ നിയന്ത്രണവും പ്രവർത്തനവും സംബന്ധിച്ച വൃവസ്ഥകളാണ് ബില്ലിലുള്ളത് പ്രത്യുത്പാദന സാങ്കേതിക സേവനങ്ങളുടെ ധാർമ്മിക പരിശീലനം വൃവസ്ഥ ചെയ്യുന്ന ബിൽ കേന്ദ്ര ആരോഗ്യമന്ത്രിയാണ് അവതരിപ്പിച്ചത്

കേന്ദ്രപ്പിട്ടാണ്ടിജ്യ വ്യവസായ വകുപ്പ് മന്ത്രി പിയുഷ് ഗോയൽ രാജ്യസഭയിൽ സ്മർപ്പിച്ച മറുപടിയിലാണ് ഇത് വ്യക്തമാക്കിയത്

കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി ബി ജെ പിയുടെ നീരജ് ശേഖർ അരുൺ സിംഗ് സമാജ്വാദി പാർട്ടി നേതാക്കളായ പ്രൊഫ രാം ഗോപാൽ യാദവ് ജാവേദ് അലി ഖാൻ കോൺഗ്രസിന്റെ രാജ് ബബ്ബാർ ബി

പിയിലെ വീർ സിങ് എന്നിവരാണ് കാലാവധി പൂർത്തിയാക്കുന്നത്

വൈകുന്നേരം പ്രതിപക്ഷാംഗങ്ങൾ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനെ സന്ദർശിച്ചു

അതിനിടെ കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കൃഷി മന്ത്രി വി

ലക്ഷണമില്ലാത്തവർക്ക് വീടുകളിൽ തന്നെ ഐസൊലേഷൻ അനുവദിച്ചിട്ടുണ്ട് എന്നാൽ വീടുകളിൽ സൌകര്യം ഇല്ലാത്ത ചിലർ ഇതിന് തയ്യാറാവുന്നില്ല കോവിഡ് വ്യാപനം കൂടിവരുന്നതും ഇതിനു മറ്റൊരു കാരണമാണ്ടെട്ടുന്നും അദ്ദേഹം പറഞ്ഞു

പരീക്ഷണം വിജയിച്ചതിൽ കേന്ദ്ര രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ഡി ആർ ഡി ഓ യെ അഭിനന്ദിച്ചു

തന്റെ കവിതകൾ സാഹിത്യ പ്രേമികൾക്ക് മാത്രമല്ല സാധാരണക്കാർക്കും പ്രചോദനമാകുമെന്ന് പ്രധാനമന്ത്രി സന്ദേശത്തിൽ പറഞ്ഞു ദിങ്കറിന്റെ അദിതീയ സൃഷ്ടികൾ എല്ലായ്പ്പോഴും ആളുകളെ പ്രചോദിപ്പിക്കുന്ന താണെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കർ ട്വിറ്ററിൽ കുറിച്ചു

മറ്റ് രാജ്യങ്ങളുടെ പരമാധികാരത്തെ മാനിക്കാനും സ്വന്തം നയങ്ങൾ ആഴത്തിൽ പ്രതിഫലിപ്പിക്കാനും പഠിക്കണമെന്നും ഇന്ത്യ തുർക്കിയോട് ആവശ്യപ്പെട്ടു

സമുദ്ര മത്സൃസമ്പത്തിന്റെ സംരക്ഷണത്തിനും ശാസ്ത്രീയ പരിപാലനത്തിനും ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന് കേരള സമുദ്രമത്സ്യനിയന്ത്രണ നിയമത്തിൽ ഭേദഗതിപ്പു വരുത്താൻ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതിന് ഗവർണറോട് ശുഷ്യാർശ്ച് ചെയ്യും

തിങ്കളാഴ്ച പുലർച്ചെയാണ് കെട്ടിടം തകർന്നത്

പ്രധാനമന്ത്രി നരേന്ദ്ര മോദിക്ക് ശ്രീ പളനിസ്വാമി അയച്ച കത്തിലാണ് ഇക്കാര്യം വൃക്തമാക്കിയത് കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം രൂപീകരിച്ച സമിതിയിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള പ്രമുഖ പണ്ഡിതന്മാരെ ഉൾപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു